ആർ ഡി ഒ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഗൈഡ് ബോംബിന്റെ പരീക്ഷണം വിജയകരം

സൌദി ഉൾപ്പെടെയുള്ള മൂന്ന് ഗൾഫ് രാജ്യങ്ങളുമായി ആയുധകച്ചവടത്തിന് അമേരിക്കയുടെ അംഗീകാരം

ജെ പി യുടെ പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് വൈകിട്ട് ന്യൂഡൽഹിയിൽ ചേർന്ന് നരേന്ദ്രമോദിയെ കക്ഷിനേതാവായി തെരഞ്ഞെടുക്കും തുടർന്ന് പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ നടക്കുന്ന എൻ

തുടർന്ന് ശ്രീ മോദി എം

രാജീീസ്ഴീകരിച്ച രാഷ്ട്രപതി പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതുവരെ കാവൽ മന്ത്രിസഭയായി തുടരാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു

സുത്യർഹ സേവനത്തിന് പ്രധാനമന്ത്രി മന്ത്രിമാർക്ക് നന്ദി അറിയിച്ചു

ജെ പി നയിക്കുന്ന എൻ

ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയം സംബന്ധിച്ച കാര്യ കാരണങ്ങൾ യോഗം ചർച്ച ചെയ്യും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി അടക്കമുള്ള നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കും

സംസ്ഥാന തലസ്ഥാനമായ അമരാഷ്ട്രിയിൽ ചേർന്ന പാർട്ടി നിയമസഭാകക്ഷി യോഗത്തിലാണ് തീരമാനം

ആന്ധ്രയിൽ ഗവൺമെന്റ് രൂപീകരണത്തിനായി അവകാശവാദം ഉന്നയിച്ച് ശ്രീ റെഡ്സി ഗവർണർ ഇ എസ് എൽ നരസിംഹനെ ഇന്ന് വൈകിട്ട് കാണും കേന്ദ്ര ഗവൺമെന്റിനുള്ള സത്യപ്രതിജ്ഞ ചടങ്ങിന് മുന്നോടിയായി ജഗൻമോഹൻ ശ്രീ നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തും

പുതിയ ഗവൺമെന്റ് രൂപീകരിക്കുന്നതുവരെ കാവൽ മന്ത്രിസഭയായി തുടരാൻ ശ്രീ പട്നായിക്കിനോട് ഗവർണർ ആവശ്യപ്പെട്ടു

ബുധനാഴ്ച പുതിയി മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് സൂചന

എല്ലാവരുടേയും സ്വപ്നങ്ങളിലുള്ള ഇന്ത്യ പടുത്തുയർത്തുമെന്നും അദ്ദേഹം ട്വിറ്ററിൽ എൻ

മോദി പറഞ്ഞു

സ്സ്ഥാനത്ത് ആകെ രേഖപ്പെടുത്തിയതിന്റെ ഒരു ശതമാന്ത് കുറവ് മാത്രമാണ് നോട്ടയ്ക്കുള്ളതെന്ന് തെരഞ്ഞെടൂപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ പറയുന്നു

അടുത്തമാസം ജപ്പാനിൽ നടക്കുന്ന ജി

ജപ്പാനിലെ ഒസാക്കയിലാണ് ജി

എസും ഇന്ത്യയും തമ്മിലുള്ള നയപരമായ കാര്യങ്ങളിലുള്ള പങ്കാളിത്തം കഴിഞ്ഞ രണ്ടുവർഷങ്ങളിലുള്ള നേട്ടങ്ങൾ എന്നിവ ചർച്ച ചെയ്യും ഇതിനിടെ യു എസ് ഇന്ത്യ ജപ്പാൻ എന്നീ രാഷ്ട്രങ്ങൾ പ്രത്യേക ത്രിരാഷ്ട്ര സമ്മേളനവും നടത്തും

ആർ ഡി

ലക്ഷ്യത്തിലേക്ക് കൃതൃമൂയി ് പതിക്കാനും പ്രതീക്ഷിക്കുന്ന ദൂരത്തിൽ എത്താനും കഴിയുന്നതാണ് ഗൈഡഡ്ബോംബ് ഒരേ സമയം വ്യത്യസ്ത ആയുധ ശേഖരണം കൊണ്ടുപോകാൻ ഇതിന് സാധിക്കുമെന്ന് തെളിഞ്ഞതായി പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി

അമേരിക്കൻ ജനപ്രതിനിധിസഭയുടെ ശക്തമായ എതിർപ്പിനെ മറികടന്നാണ് ട്രംപ് ഗവൺമെന്റിന്റെ തീരുമാനം

സേനാവിഭാഗങ്ങളും സുസജ്ജമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഏഴിമല അക്കാഡമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ നേവൽ കേഡറ്റുകളുടെ പാസ്സിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു കരസേന മേധാവി

റഷ്യൻ നിർമിത എ

ചണ്ഡിഗഡിലെ വിമാനത്താവളത്തിൽ കഴിഞ്ഞ ഒരു വർഷമായി ഇത് സംബന്ധിച്ച പരീക്ഷണം നടന്നുവരികയായിരുന്നു

തക്ഷശില കോംപ്ലക്സിലെ ബഹുനിലു ഉകിട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ട്യൂഷൻ സെൻററിലെ കുട്ടികളാണിവർ

ന്യൂസീലൻഡിനെയാണ് ഇന്ത്യ നേരിടുന്നത്

ഇംഗ്നീഷ് സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുകയാണ് ഐ സി സി റാങ്കിംഗിൽ രണ്ടാം സ്ഥാനക്കാരായ വിരാട് കോഹ്ലിയുടെയും സംഘത്തിന്റെയും ലക്ഷ്യം ബാറ്റിംഗിൽ നാലാം നമ്പർ സ്ഥാനത്ത് ആരെത്തുമെന്ന ആകാംക്ഷയിലാണ് ഇന്ത്യൻ ആരാധകർ

ഞെട്ടിപ്പിക്കുന്ന തോൽപീയാണ് ക്രിക്കറ്റിലെ കുഞ്ഞന്മാരായ അഫ്ഗാനിസ്ഥാനാണ് പാക്കിസ്ഥാനെ അട്ടിമറിച്ചത് മൂന്ന് വിക്കറ്റിനായിരുന്നു അഫ്ഗാന്റെ ജയം

മറ്റൊരു സന്നാഹ മത്സരത്തിൽ

മേരികോം മുതിർന്നതാരം എൽ

ബ്രിട്ടന്റെ അടുത്ത പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കാനുള്ള യോഗം കൂടിയാണിത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസ മെയ് രാജി പ്രഖ്യാപിച്ച സ ഹാചര്യത്തിലാണ് പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കുന്നത് ബ്രെക് സിറ്റ് കരാറുമായി ബന്ധപ്പെട്ട് എം പിമാരുടെ പിന്തുണ നേടാൻ കഴിയാത്തതിനെ തുടർന്നാണ് രാജി

ബ്രെക്സിറ്റ് നടപ്പിലാക്കാൻ കഴിയാത്തത് ഇപ്പോഴും ഭാവിയിലും തന്നെ വേദനിപ്പിക്കുമെന്ന് തെരേസ മെയ് പുറത്തിറക്കിയ വാർത്താ കുറിപ്പിൽ വൃക്തമാക്കി

ഇൌസ്റ്റർ ദിനത്തിലെ ഭീകരാക്രമണത്തിന് ശേഷമാണ് ശ്രീലങ്കയിൽ യാത്രാവിലക്ക് ഏർപ്പെടുത്തിയിരുന്നത്

തുടർച്ചയായ രണ്ടാം ദിവസവും ട്രെയിൻ സർവീസുകൾ നിർത്തിവെച്ചു അൻസാർ ഗസ്വത്തുൽ തലവൻ ഹിന്ദ് സക്കീർ മൂസയാണ് പുൽവാമയിൽ സൈന്യവുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഇന്നലെ കൊല്ലപ്പെട്ടത്